സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും

എൻ

ഇന്ത്യയും അയർലൻഡും വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചർച്ച ചെയ്തു

നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഏറ്റുമുട്ടും

വീഡിയോ കോൺഫറൻസിംഗി ലൂടെയാണ് പ്രധാനമന്ത്രി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക

മുൻമുഖ്യമ്ന്ത്രി എം

ഇന്ത്യയുടെ സഹായത്തോടെ ഈ രാജൃങ്ങളിൽ വാക്സിനേഷൻ പ്രക്രിയ ആരംഭിച്ചു മറ്റ് രാജ്യങ്ങളും ഇന്ത്യയുടെ മാതൃക പിന്തുടരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു

എൻ സുരക്ഷാ സമിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യയും അയർലൻഡും വീഡിയോ കോൺഫറൻസിലൂടെ ചർച്ച ചെയ്തു

എൻ സുരക്ഷാ സമിതി കർമ്മ സംഘം മേധാവിയും യുഎൻ ഡയറക്ടറുമായ ജെറാൾഡ് കിയോൺ ഐറിഷ് സംഘത്തെ നയിച്ചു ഇന്ത്യയിലെ അയർലൻഡ് സ്ഥാനപതിയും പങ്കെടുത്തു ഇന്ത്യൻ സംഘത്തെ ജോയിന്റ് സെക്രട്ടറി പ്രകാശ് ഗുപ്ത നയിച്ചു അയർലൻഡിലെ ഇന്ത്യൻ സ്ഥാനപതി വിദേശകാര്യമന്ത്രാലയം ഉദ്യോഗസ്ഥർ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ എന്നിവർ ചർച്ചയിൽ സംബന്ധിച്ചു

എൻ സുരക്ഷാ സമിതിയിൽ പ്രവർത്തിക്കാൻ ഇരുവിഭാഗവും തീരുമാനിച്ചു ന്യൂസ്ഡസ്ക് ആകാശവാണി

കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ നടത്തിയ മൻ കി ബാത് പരിപാടിയിൽ കളിപ്പാട്ടങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റിയും അവയ്ക്ക് പുതിയ മാനം നല്കുന്നതിനെപ്പറ്റിയും പറഞ്ഞു

വിദ്യാർത്മിക്കളും അധ്യാപകരും അഭിമുഖീകരിക്കുന്ന അസാധാരണ സാഹചര്യവും മാതാപിതാക്കളുടെ അഭ്യർത്ഥനയും വിദഗ്ദ്ധ അഭിപ്രായവും കണക്കിലെടുത്താണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി നിയമസഭയിൽ വ്യക്തമാക്കി

നിയമസഭയിൽ മുഖ്യമന്ത്രി എടപ്പാടി പളനിസാമിയാണ് ഇക്കാര്യം അറിയിച്ചത്

നാളെയാണ് ഗ്ലെയിംസ് ആരംഭിക്കുന്നത്

തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ വാർത്തകൾ നൽകുന്നതിന് മാധ്യമസ്ഥാപനങ്ങളുമായി ചർച്ച ചെയ്ത് പ്രതിഫലം ഉറപ്പിക്കണമെന്നാണ് ന്യൂസ് മീഡിയ ബാർഗയിനിങ് കോഡ് നിർദ്ദേശിക്കുന്നത്

ഫെയ്സ്ബുക്കിന്റെയും ഗൂഗിളിന്റെയും എതിർപ്പിനെ തുടർന്ന് ചില ഭേദഗതികളോടെയാണ് ഇന്നലെ ജനപ്രതിനിധിസഭ ബിൽ പാസാക്കിയത്

കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഇക്കുറി വീടുകളിൽ പൊങ്കാലയിടണമെന്നാണ് നിർദ്ദേശം

കൂടുതൽ വിവരങ്ങളുമായി ദീപു എസ്

ഇയാളെ വിട്ട് നൽകാനുള്ള കോടതി ഉത്തരവ് അഴിമത്തിക്കെതിരായ പോരാട്ടത്തിൽ വലിയ നേട്ടമാണ്

വൃക്തമായ തെളിവില്ലെന്നും അന്വേഷണം സുതാര്യമല്ലെന്നും വിചാരണ ജയിൽ സാഹചരൃങ്ങൾ ഇന്ത്യയിലെ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ നല്ലതല്ല എന്നിങ്ങനെ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച് തന്നെ ഇന്ത്യക്ക് കൈമാറുന്നത് ഒഴിവാക്കാൻ നീരവ് മോദി ശ്രമിച്ചിരുന്നു എന്നാൽ ഇന്ത്യയുടെ വാദഗതികൾ അംഗീകരിച്ചാണ് നീരവ്മോദിയുടെ ഇന്ത്യക്ക് കൈമാറാൻ കോടതി ഉത്തരവിട്ടത്

മനുഷ്യാവകാശ ലംഘനം തുടങ്ങി നീരവ്മോദി ഉന്നയിച്ചു കാര്യങ്ങൾ ഇംഗ്ലണ്ടിലെ കോടതി തള്ളുകയായിരുന്നു ന്യൂസ്ഡസ്ക് ആകാശവാണി

റ്റി ഓൺലൈൻ സ്ട്രീമിംഗ് സാമൂഹ്യമാധ്യമ പ്ലാറ്റ്ഫോമുകൾ എന്നിവയ്ക്കായി മാർഗ്ഗനിർദ്ദേശങ്ങളും ഡിജിറ്റൽ മീഡിയ ധാർമ്മിക പുറത്തിറക്കുന്നതിന്റെ നിയമവും സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു ആഭ്യന്ത്ർമ്ന്തി

കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്

നാല് ദിവസമാണ് രാഷ്ട്രപതി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുണ്ടാവുക

ഇന്നലെ നടന്ന മത്സിർത്തിൽ ബംഗളൂരു എഫ് സിയെ രണ്ടിനെതിരെ മൂന്നു പ്രഗോളുകൾക്ക് ജംഷദ്പൂർ എഫ് സി പരാജയപ്പെടുത്തി